ജെ പി ബൂത്ത്തല പ്രവർത്തകരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അൽപ്പസമയത്തിനകം വീഡിയോ കോൺഫറൻസിം ഗിലൂടെ സംവദിക്കും മാർഗോയിലെ ബാർഡ മൾട്ടി പർപ്പസ് ഹൈസ്കൂളിലാണ് പരിപാടി നടക്കുന്നത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ വീണ്ടും അധികാരത്തിൽ എത്തിക്കുന്നത് സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി പ്രവർത്തകർക്ക് നൽകുന്നത്

രാജ്യത്തെ രണ്ടാമത്തെ പ്രതിരോധ വ്യവസായ ഇടനാഴിയാണിത്

തുടർന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ ത്രിച്ചിയിൽ നിന്നും വീഡിയോ കോൺഫറൻസിംഗിലൂടെ കോയമ്പത്തൂർ പ്രതിരോധ ഇന്നോവേഷൻ ഹബ്ബും ഉദ്ഘാടനം പ്രെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഗസ്റ്റിൽ രാജ്യത്തെ ആദ്യത്തെ പ്രതിരോധ് വ്യവസായ ഇടനാഴി ഉത്തർപ്രദേശിലെ അലിഗറിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു രാജ്യത്ത് പ്രതിരോധ ഉത്പാദസ്റ്റ് തൂരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപ്പിച്ചിരുന്നതാണ് രണ്ട് പ്രതിരോധ ഇടനാഴികൾ ത്രിച്ചി സ്ലേൽ ഹൊസൂർ കോവായ് മധുരൈ എന്നീ ആറ് നോഡുകളാണ് തമിഴ്നാട്ടിലെ ഇടനാഴിയിൽ ഉള്ളത്

തനിക്ക് എതിരെയല്ല ജനങ്ങൾക്ക് എതിരെയാണ് പ്രതിപക്ഷ സഖ്യം പ്രവർത്തിക്കുന്നതെന്നും ദാദ്രനഗർ ഹവേലിയിലെ ഒരു ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു

അഴിമതിയ്ക്കും പൊതുധനം ധൂർത്തടിക്കുന്നതിനും എതിരെയുള്ള തന്റെ ശ്രമങ്ങളാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിക്കുന്നത് ജനാധിപതൃത്തെ തകർത്തവരാണ് ജനാധിപത്യ സംരംക്ഷണത്തിന് വേണ്ടി ഇപ്പോൾ വാദിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

നാളെ വാരണാസിയിൽ നടക്കുന്ന പ്രവി്റ്സി ഭാരതീയ ദിവസിൽ അദ്ദേഹം പങ്കെടുക്കും തുടർന്ന് ഗുംഗ്ലാ ആരതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പങ്കെടുത്ത് ബോട്ട് യാത്ര നടത്തും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിദ്ദേശക്ര്യമന്ത്രി സുഷമാ സ്വരാജ് തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും

ഐ എസ് ഭീകരവേട്ടയുടെ ഭാഗമായി ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സഖ്യസേന ബഗൂസ് തഹ്താനി ഗ്രാമത്തിൽ ബോംബാക്രമണം നടത്തിയത് കൊല്ലപ്പെട്ട കൂടുതൽ പേരും നാട്ടുകാരാണെന്ന് സിറിയൻ ദിനപത്രമായ അൽ വതൻ റിപ്പോർട്ട് ചെയ്തു സഖ്യസേനയുടെ പകൽസമയത്തെ ആക്രമണം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് സിറിയ യു എന്നിനെ സമീപിച്ചിട്ടുണ്ട് അതിനിടെ സൌദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന യമനിലും വ്യോമാക്രമണം നടത്തി രാജ്യതലസ്ഥാനമായ സനായിൽ നടന്ന ആക്രമണത്തിൽ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല

വെള്ളിയാഴ്ച തുടങ്ങിയ സംഗമം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാട്ട്നം ചെയ്തത്

കഴിഞ്ഞ ബുധനാഴ്ചയാണ് അമിത് ഷായെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്

പൌരത്വ ഭേദഗതി ബിൽ പാസായാൽ

ഈ വിഷയത്തിൽ അസം ജനതയുടെ താൽപരൃം സംരക്ഷിക്കുമെന്നും മുഖൃമന്ത്രി മോറിഗോണിൽ പറഞ്ഞു ഭേദഗതി ബില്ലിനെതിരെ ഏറെക്കാലമായി അസമിലെ വിവിധയിടങ്ങളിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നുവരികയാണ്

എസ് ഡോളർ കൈവരിക്കാനുള്ള ശേഷിയിലേയ്ക്ക് ഇന്ത്യ ഉയരുമെന്ന് കേന്ദ്ര വ്യോമയാനമന്ത്രി സുരേഷ് പ്രഭു പറഞ്ഞു ഗാന്ധി നഗറിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടി സെമിനാ റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ സുരേഷ് പ്രഭു നിർമ്മാണ സേവന മേഖല കൃഷി തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് റോഡ് ഒരു മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു

മുംബൈയിൽ ഇന്ത്യൻ സിനിമ ദേശീയ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ ഭേദഗതി നിലവിൽ വരുന്നതോടെ സിനിമകളുടെ വ്യാജപ്പതിപ്പ് ഇറക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കും രാജ്യത്തെ സിനിമ വൃവസായത്തിന് താമസിയാതെ ഏകജാലകം ക്ലിയറൻസ് സംവിധാനം ഒരുക്കുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

സമാപനചടങ്ങുകൾ ഇപ്പോൾ ഛത്രപതി ശിവാജി ഷൂട്ടിംഗ് കോപ്ലക്സിൽ പുരോഗമിക്കുകയാണ്

വിശദവിവരങ്ങളുമായി അരുൺകുമാർ

എട്ട് വെള്ളിയും രണ്ട് വെങ്കലവും ഹരിയാന ഇടിക്കൂട്ടിൽ നിന്നും കരസ്ഥമാക്കി നാല് സ്വർണവും ഒരു വെള്ളിയും ഒൻപത് വെങ്കലവും നേടി മഹാരാഷ്ട്ര താരങ്ങളും ബോക്സിംഗിൽ അവിസ്മരണീയമായ പ്രകടനം കാഴ്ച വച്ചു ബാസ്കറ്റ് ബോളിൽ പഞ്ചാബും ഹരിയാനയും രണ്ട് വീതം സ്വർണം കരസ്ഥമാക്കി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഗവൺമെന്റ് വിതരണ ശൃംഖലയിൽ നിന്ന് പെട്രോൾ ചോർത്താനുള്ള ശ്രമത്തിനിടെയാണ് സ്ഫോടനം ഉണ്ടായത് ഗവൺമെന്റ് പൈപ്പ് ലൈനുകളിൽ നിന്നും പെട്രോൾ അനധികൃതമായി കടത്തുന്നത് മെക്സിക്കോയിൽ പതിവാണ് ഇത് തടയാൻ പ്രസിഡന്റ് ലോപ്പസ് ഒബ്രഡോർ കർശന നടപടികൾക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്

മഹാരാഷ്ട്ര പോലീസിന്റെ ഭീകരവിരുദ്ധ വിഭാഗമാണ് ഇവരെ പാൽഗഡ് ജില്ലയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് രേഖകളില്ലാതെ ഇവർ കഴിഞ്ഞ രണ്ട് വർഷമായി നൽസാപോറയിൽ താമസിച്ചുവരികയായിരുന്നു പാസ്പോർട്ട് വിദേശി നിയമ ലംഘനത്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്

രാഷ്ട്രീയത്തിലെ പദവി വൃക്തിതാൽപരൃങ്ങൾക്കായി ദുരുപയോഗം ചെയ്തുവെന്നാരോപിച്ചാണ് നടപടി

ജെ

ജെ

ദേശീയ നിർവ്വാഹക സമിതി അംഗം പി

കൃഷ്ണദാസ് ആണ് അവസാനം നയിച്ചത്

കേരള സമൂഹത്തിന്റെ വലതുപക്ഷവൽക്കരണം ശ്രില്പശാലയിൽ സംസാരി ക്കുകയായിരുന്നു മുഖ്യമന്ത്രി

ഗവൺമെന്റ് വിശ്വാസികൾക്കെതി നിലപാട് എടുത്തുവെന്ന രെ പ്രചരണം യുടേതായിരുന്നു പി ബി സമൂഹത്തിൽ ജെ ജാതിമേധാവിത്വ ശക്തികൾ ഉയർന്നുവരുന്നത് തടയുക മാത്രമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ നിന്നായി രണ്ടരലക്ഷത്തോളം വിശ്വാസികൾ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ

ഇന്നലെ രാത്രിവരെയാണ് ഭക്തർക്ക് ദർശനത്തിനായി ക്ഷേത്ര ത്തിൽ പ്രവേശനം അനുവദിച്ചിരുന്നത്